ജെ

എന്നാൽ ഈ ദുഃസ്വാധീനം നേരിടാൻ വ്യക്തമായ മാർഗ്ഗ നിർദ്ദേശങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കഴിഞ്ഞതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് രഹസ്യാന്ധേഷണ വിഭാ ഗവുമായി ബന്ധപ്പെട്ട വകുപ്പുതല കമ്മിറ്റികളുടെ യോഗത്തിൽ പങ്കെടുക്കു കയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം ശക്തമാക്കിയതോടെ പലയിടത്തുനിന്നും വൻതുക പിടിച്ചെടു ക്കാൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾക്ക് കഴിഞ്ഞതായും മുഖ്യ തെരഞ്ഞെ ടുപ്പ് കമ്മീഷണർ വെളിപ്പെടുത്തി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവും അതിനെതിരെ സ്വീകരിച്ച നട പടികളും ഓരോ ദിവസവും വൈകീട്ട് ജില്ലാ കലക്ടർമാർ മുഖ്യ തെരഞ്ഞെ ടുപ്പ് ഓഫീസർക്ക് നൽകണമെന്ന നിർദ്ദേശം നിലവിൽവന്നു ഇത് കൃത്യ മായി പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ ജോയിന്റ് ചീഫ് ഇലക്ട റൽ ഓഫീസർ കെ ജീവൻബാബുവിനെ നോഡൽ ഓഫീസറായി നിയമിച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിലും പൊതുഗതാഗത സംവിധാ നങ്ങളിലും സ്ഥാപിച്ച പരസ്യങ്ങൾ ഉടനടി നീക്കം ചെയ്യും മന്ത്രിമാർ രാഷ്ട്രീ യകക്ഷി നേതാക്കൾ പാർട്ടികൾ എന്നിവരുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നിന്ന് നീക്കംചെയ്യേണ്ടതാണ് അനധികൃത പ്രചാരണ സാമഗ്രികൾ നീക്കംചെയ്യാൻ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നേരത്തെതന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് തിരുവന ന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ഇലക്ട്രോ ണിക് വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് സംവിധാനം എന്നിവ പരിചയപ്പെ ടുത്തും

ഡൽഹിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും ഇന്നലെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമച ന്ദ്രനും മത്സരിച്ചേക്കില്ല എന്നാണ് വിവരം എന്നാൽ കെ സി വേണുഗോപാ ലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനം എടുക്കു ഇടുക്കിയിൽ കേരള കോൺഗ്രസ് നേതാവ് പി

പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ടതില്ലെന്ന് സ്ക്രീനിംഗ് കമ്മി റ്റിയിൽ തീരുമാനമായി

യോഗത്തിൽ ചെന്നി ത്തലക്ക് പുറമെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും മുകുൾ വാസ്നി ക് കെ സി വേണുഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു

അസം മേഘാലയ യു പി സിക്കിം തുടങ്ങിയ ആറ് സംസ്ഥാ നങ്ങളിൽ മത്സരിക്കുന്നവരാണ് ഇവർ

ജെ പി സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിച്ചേ ക്കും വിവിധ സംസ്ഥാനങ്ങളിലെ നൂറ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപി ക്കുമെന്ന് ബി ജെ

ഇതിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി കളും ഉൾപ്പെട്ടേക്കും

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാ നമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെ ടുക്കുന്നുണ്ട് സമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് സംസ്ഥാന ഘടകം സമർപ്പിച്ച ചുരുക്കപ്പട്ടിക വിശദമായി പരിശോധിച്ചായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനും രാവിലെ ഡൽഹിയിലെത്തും ഓരോ മണ്ഡലത്തിലും മൂന്ന് സ്ഥാനാർത്ഥികളെ വീത മാണ് സംസ്ഥാന നേതൃത്വം ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോ ടൊപ്പം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാ പ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനവും ഇന്നുണ്ടായേക്കുമെന്ന് സൂച നയുണ്ട്

ഐ കൂടിക്കാഴ്ച സംബന്ധിച്ച റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് കോഴിക്കോട്ട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പോപ്പുലർഫ്രണ്ട് എൻ

എഫ് എസ്

ഐ തുടങ്ങിയ സംഘടനകളുമായി ലീഗിന് രാഷ്ട്രീ യമായി ഒരിക്കലും യോജിച്ചുപോകാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി

ഐ നേതാക്കൾ പൊതുസ്ഥലത്ത് നേരിൽ കണ്ടപ്പോൾ കുശലാമ്പേഷണം നടത്തിയതിനെ കൂടിക്കാഴ്ചയായി ചിത്രീകരിക്കുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും മജീദ് പറഞ്ഞു

വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ കഴിഞ്ഞ ദിവ സങ്ങളിൽ ആരംഭിച്ചിരുന്നു പ്രമുഖ വൃക്തികളെ നേരിൽകണ്ടും സ്ഥാപന ങ്ങൾ സന്ദർശിച്ചും വോട്ട് ഉറപ്പാക്കാനാണ് ഇടത് സ്ഥാനാർത്ഥികളുടെ നീക്കം എല്ലാ മണ്ഡലങ്ങളിലും കൺവെൻഷൻ പൂർത്തിയാക്കിയ എൽ ഡി എഫ് ബൂത്തുതല പ്രചാരണത്തിന് ഇന്ന് തുടക്കമിടും അടുത്ത ദിവസങ്ങളിൽ കുടുംബ സംഗമങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും മന്ത്രിമാരടക്കം പ്രമുഖർ സംഗമങ്ങളിൽ പങ്കെടുക്കും

തളിപ്പറമ്പ് കീഴാറ്റൂർ വയൽ ദേശീയപാത ബൈപ്പാസിനായി ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയ സംഘടനയാണ് വയൽക്കിളികൾ രുട്ടിട്ട്ട്ട്ട്ട്ട്ട തമിഴ്നാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് ചെന്നൈ സ്റ്റെല്ലമേരീസ് കോളജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ അനുമതി നൽകിയ നടപടി അന്വേഷിക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് ഉത്തരവിട്ടു തെര ഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ ഇതി നുപുറമെ സ്ഥാപന മേധാവികൾ മാതൃകാ പ്പെരുമാറ്റച്ചട്ടം പാലിക്കാനും ബാധ്യസ്ഥരാണ്

രദ്ദേഷ്ടങ കോഴിക്കോടും കണ്ണൂരും തൃശൂരും ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ താപനില രണ്ട് മുതൽ മൂന്നുവരെ ഡിഗ്രി സെൽഷ്യസ് വർദ്ധി ക്കാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറി യിപ്പ് നൽകി എറണാകുളവും കോട്ടയവുമാണ് സൂര്യതാപം ഉയരുന്ന മറ്റ് രണ്ട് ജില്ലകൾ

രദ്ദേഷ്ടങ ഹോങ്കോംഗിൽ ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സിന്റെ ആദ്യ ദിനം ഇന്ത്യക്ക് രണ്ട് സ്വർണമടക്കം അഞ്ച് മെഡലുകൾ ലഭിച്ചു

ഗോകുലം കേരള എഫ് സിയും ഡൽഹി ഡൈനാമോസും തമ്മിലാണ് ഇന്നത്തെ മത്സരം എന്നാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പക്ഷപാത നയങ്ങളിൽ പ്രതിഷേധിച്ച് ഗോകുലം ഇന്ന് കളിക്കില്ല

മിയാമിയിൽ ചേർന്ന ഫിഫ കൌൺസിൽ യോഗമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്

ആതിഥേയരെന്ന നിലയിൽ ടൂർണമെന്റിൽ ഇന്ത്യക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും

രോഗംബാധിച്ച് മെഡിക്കൽ കോള ജിൽ കഴിയുന്ന കുട്ടിയെ സംഘം ആശുപത്രിയിലെത്തി നേരിൽകണ്ടു കുട്ടി യുടെ വീടും പരിസരവും പരിശോധിച്ച സംഘം വളർത്തുമൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു വെസ്റ്റ് നൈൽ ഭീഷണിയുടെ സാഹചരൃത്തിൽ കൊതുക് നിവാരണത്തിന് കർശന നടപടിയെടുക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു

എസ് എൽ സി ഉത്തരക്കടലാസുകൾ വഴിയിൽ വീണ സംഭവത്തിൽ പരീക്ഷാ ചുമതലയുണ്ടായിരുന്ന ചീഫ് സൂപ്രണ്ടിനെയും ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടിനെയും സസ്പെന്റ് ചെയ്തു ഇവരെ പരീക്ഷാ ചുമതലയിൽ നിന്ന് നേരത്തെതന്നെ ഒഴിവാക്കിയിരുന്നു രദേഷ്ടെടു പ്രളയാനന്തര ധനസഹായത്തിന് ഇനിയും അപേക്ഷിക്കാമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന ട നടപടിയെടുക്കുമെന്ന് എറണാകുളം ജില്ലാ കലക്ടർ മുഹമ്മദ് വൈ സഫീ റുള്ള അറിയിച്ചു പ്രളയനഷ്ടവുമായി ബന്ധപ്പെട്ട അപേക്ഷകളോ അപ്പീലു കളോ ഒരിടത്തും സ്വീകരിക്കുന്നില്ലെന്ന് കലക്ടർ വൃക്തമാക്കി

കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കു റിച്ചും അദ്ദേഹം അധികൃതരുമായി ചർച്ച നടത്തി

കൂമളിയിൽ നിന്നും പത്ത നംതിട്ടയിലേക്ക് കഞ്ചാവ് കാറിൽ കടത്തുന്നതിനിടയിലാണ് ഇവരെ പിടി കൂടിയത്